ബിഹാറിലെ കോസി റെയിൽ മഹാസേതു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിനു സമർപ്പിച്ചു

കഴിഞ്ഞ അഞ്ച് മാസ്ത്തിനിടെ ചൈനയുമായുള്ള ഇന്ത്യയുടെ വ്യാപാരക്കമ്മിയിൽ കുറവ് രേഖപ്പെടുത്തിയതായി കേന്ദ്ര മന്ത്രി പിയുഷ് ഗോയൽ

പ്രതിരോധ മേഖലയിലെ നേരിട്ടുള്ള വിദേശനിക്ഷേപ നയത്തിലെ ഭേദഗതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി

കേരളത്തിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർദ്ധന തുടരുന്നു ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ കൃഷ് നാലായിരത്തിലധികം സമ്പൂർക്ക് രോഗികൾ

ബില്ലിനെ സിപിഐഎമ്മും കോൺഗ്രസും എതിർത്തു ബിൽ ഉദ്ദേശശുദ്ധിക്ക് നിരക്കാത്തതാണെന്ന് കേരളത്തിൽ നിന്നുള്ള സി

ഐ

രാജ്യത്ത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും ആരോഗൃ പരിരക്ഷാ സംവിധാനവും ബില്ലുകൾ ഉറപ്പാക്കുമെസ്സ് ബിജെപിയുടെ ഡോ

രാജ്യത്തെ പാര്രമ്പിര്യവൈദ്യശാസ്ത്രശാഖകളായ ആയുർവേദം യോഗ പ്രകൃതിചികിത്സ എന്നിവയുടെ മേൽനോട്ടത്തിനായി സ്മാപിച്ചു കേന്ദ്രീകൃത സമിതിയുടെ പുനസംഘടനയാണ് ബ്ലില്ലിന്റെ നിർദിഷ്ട ലക്ഷ്യം സമിതിയുടെ ഭരണത്തിനായി കേന്ദ്രസ്ർക്കാർ പത്ത് അംഗങ്ങൾ ഉൾപ്പെടുത്തുന ബോർഡ് രൂപീകരിക്കുമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്

വിദേശ നിക്ഷേപം ഉയർത്താനും വരുമാന വർധന തൊഴിൽ ലഭൃത എന്നിവ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ ഭേദഗതി കാരണമാകുമെന്ന് കേന്ദ്ര മന്ത്രി പിയുഷ് ഗോയൽ അറിയിച്ചു ആത്മ നിർഭർ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഈ പുതിയ ഭേദഗതികൾ പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം കൈവരിക്കാൻ സഹായിക്കുമെന്നും ശ്രീ ഗോയൽ വൃക്തമാക്കി എന്നാൽ ദേശീയ സുരക്ഷയുടെ പശ്ചാത്തലത്തിൽ പ്രതിരോധ മേഖലയിലെ വിദേശ നിക്ഷേപങ്ങൾ വിവിധ പരിശോധനകൾക്ക് വിധേയമാകും എന്നും അദ്ദേഹം പറഞ്ഞു

എന്നാൽ മഹാ്രാഷ്ട്ര കർണാടക ആന്ധ്രപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ്രോഗബാധിതരുടെ എണ്ണം വർധിക്കുന്നത് ആശങ്ക നൽകുകയാണ് കൂടുതൽ വിവരങ്ങളുമായി കിരൺ ശങ്കർ

മഹാരാഷ്ട്രയിൽ കോവിഡ് രോഗികളുടെ എണ്ണം പ്രതിദിനം ഉയരുകയാണ്

ആന്ധ്രപ്രദേശിൽ കോവിഡ് പരിശോധന നിരക്കിൽ റെക്കോർഡ് വർധന രേഖപ്പെടുത്തി

കർണാടകയിൽ ഇന്നലെ മാത്രം ഒൻപതിനായിരത്തിലധികം പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്

വിവിധ കേന്ദ്ര സംഘങ്ങളെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം ടിറ്ററിൽ കുറിച്ചു

മറ്റ് പതിമൂന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണപ്രദേശങ്ങളിലും നിലവിൽ അയ്യായിരത്തിൽ താഴെ മാത്രം രോഗികളാണ് ഉള്ളതെന്നും മന്ത്രാലയം വൃക്തമാക്കി

കേരളത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയത്തിൽ ഏറ്റവും ഉയർന്ന രോഗമുക്തിയാണിത്

ആരിൽ നിന്നും ആരിലേക്കും കോവിഡ് പകരുന്ന സമയമാണിതെന്നും മന്ത്രി പറഞ്ഞു ജീവന്റെ വിലയുള്ള ജാഗ്രതൃസ്മൂയത്ത് കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് വലിയ ആൾക്കുട്ടത്തോടെ പ്രതിഷേധം നടത്തുന്നത് ആശങ്ക നൽകുകയാണ്

പ്രതിഷേധങ്ങൾക്ക് ആരും എതിരല്ലെന്നും ആർോഗ്യവകുപ്പിന്റെയും പൊതുജനങ്ങളുടെയും ഏഴ് മാസത്തെ കഠിനപ്രയത്നം തല്ലിക്കെടുത്തരുതെന്നു ് ശ്രീമതി കെ

കക്ഷിരാഷ്ട്രീയവും ജാതിചിന്തയും മറന്ന് എല്ലാവരും സഹകരിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു

ഏറ്റവുമധികം രോഗബാധിതരുള്ള യു എസിൽ ആകെ രോഗം ബാധിച്ചവരുടെ എണ്ണം അറുപത്തി എട്ട് ലക്ഷത്തിന് മുകളിലാണ്

ആഗോളതലത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ സുരക്ഷ ഭീഷണിയാണ് കൊറോണ വൈറസ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കോവിഡ് പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ പൊതു അസംബ്ലി സമ്മേളനം മുൻ വർഷങ്ങളിൽ നിന്നും വൃത്യസ്തമായിരിക്കുമെന്ന് ഗുട്ടെറസ് അറിയിച്ചു കോവിഡ് പ്രതിരോധ വാക്സിൻ എല്ലാവർക്കും ലഭ്യമാകുന്ന തരത്തിൽ വികസിപ്പിക്കേണ്ടതുണ്ടെന്നും ഐക്യ രാഷ്ട്ര സഭ സെക്രട്ടറി ജനറൽ വ്യക്തമാക്കി

എസ് പ്രസിഡന്റ് ഡൊണൾഡ് ട്രംപിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ആഴത്തിലുള്ള സൌഹൃദമാണ് ഉള്ളതെന്നും ഇത് മാനവികതയ്ക്ക് തന്നെ ശക്തി പകരുന്നതാണെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

നരവനെയുടെ കശ്മീർ സന്ദർശനം തുടരുന്നു നിയന്ത്രണ രേഖയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി ഇന്നലെയാണ് അദ്ദേഹം കശ്മീരിലെത്തിയത് സൈനികരുമായി ആശയവിനിമയം നടത്തിയ അദ്ദേഹം പർവ്വതമേഖലകളിൽ കൃത്യനിർവ്വഹണത്തിലുള്ള സൈനികരെ അഭിനന്ദിച്ചു പര്യടനം പൂർത്തിയാക്കി കരസേനാ മേധാവി ഇന്ന് ഡൽഹിക്ക് മടങ്ങും

കേന്ദ്രമന്ത്രി ഹർസിമ്രത് കൌർ ബാദൽ രാജിവച്ച സാഹചര്യത്തിലാണ് തീരുമാനം കാർഷിക പരിഷ്ക്കരണ ബില്ലിൽ പ്രതിഷേധിച്ചായിരുന്നു രാജി